മത്സൃമേഖലയുടെ സുസ്ഥിര വികസനത്തിനായി മത്സ്യ സമ്പദ യോജനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും

കൂട്ടിച്ചേർക്കും

കേരളത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും മൂവായിരം കടന്ന് കോവിഡ് രോഗികൾ

മഴ തുടരുന്നു

സെമി ഫൈനലിൽ

മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന നിക്ഷേപ തുകയാണിത് മത്സ്യമേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും പദ്ധതി ഊന്നൽ നൽകും മത്സ്യക്കുഞ്ഞുങ്ങളുടെ ബാങ്കും ജലാശയ രോഗങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ആശുപത്രിയും പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കും രാജ്യത്തെ മത്സ്യമേഖലയുടെ പരിവർത്തനത്തിലൂടെ സ്വയം പര്യാപ്ത ഇന്ത്യയുടെ ശാക്തീകരണത്തിന് പദ്ധതി വഴിതെളിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്റർ സന്ദേശ്രത്തിൽ അറിയിച്ചു കന്നുകാലി കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള് ഇ ഗോപാല ആപ്പിനും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കൂം

മോദി അഭിനന്ദിച്ചു

ഇതോടനുബന്ധിച്ച് അംബാല വ്യോമതാവളത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും

ചൈനയെ നേരിടാൻ വിപുലമായ പ്രാദേശിക ആഗോള സംവിധാനം വേണമെന്ന് മന്ത്രി പറഞ്ഞു വാഷിങ്ടൺ ആസ്ഥാനമായ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആന്റ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ വെബിനാറിൽ സംസാരിക്കുക യായിരുന്നു മന്ത്രി ഇന്ത്യൻ മഹാസമുദ്രവും പസഫിക് സമുദ്രത്തിന്റെ മധ്യ പടിഞ്ഞാറ് ഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ്ട് ഇൻഡോ പസഫിക് മേഖല തെക്കൻ ചൈനാ കടലിൽ ക്ടൈന്ന് ഉ്യർത്തുന്ന അവകാശ വാദങ്ങൾക്കെതിരെ വിയറ്റ്നാം ഫിലിപ്പ്പീൻസ് മലേഷ്യ ബ്രൂണെ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങൾ രീഗ്ലത്തുണ്ട്

ആസിയാൻ അദ്ധ്യക്ഷ രാജ്യമെന്ന നിലയിൽ വിയറ്റ്നാമിന്റെ പ്രവർത്തനങ്ങളെ ശ്രീ

കോൺക്ലേവിന്റെ ആദ്യ ദിനത്തിൽ പ്രിൻസിപ്പൽമാരും അദ്ധ്യാപക പരിശീലകരുമാണ് കേന്ദ്രബിന്ദു

പുതിയ വിദ്യാഭ്യാസ നയത്തിൽ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രധാന വസ്തുതകൾ വിദഗ്ദ്ധർ വിശദീകരിക്കും

പുതിയ വിദ്യാഭ്യാസ നയത്തെയും അത് നടപ്പാക്കുന്നതിനെയും സംബന്ധിച്ച് നിരവധി വെബിനാറുകൾ വിദ്യാഭ്യാസമന്ത്രാലയം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്കൂൾ അസംബ്ലിയ്ക്കും കായിക്ട് പ്രിശ്രീലനത്തിനും താൽക്കാലിക വിലക്കുണ്ട്

ഓൺലൈൻ ക്സാസുകൾ നിരോധിക്കണമെന്നാവശൃപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഒരു കൂട്ടം പൊതുതാൽപര്യ ഹർജികളിൽ തീർപ്പുകൽപ്പിച്ചാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്

എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയവർക്കെതിരെ ഗവൺമെന്റ് കർശനമായ നടപടി കൈക്കൊള്ളുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി വ്യക്തമാക്കി

ബി സി ഐ

എടപ്പാടി പളനിസ്വാമി തിരുവണ്ണാമലയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

കോവിഡ് പകർച്ചവ്യാധി മൂലം ആദ്യമായാണ് രണ്ട് ദിവസത്തെ സമ്മേളനം പൂർണ്ണമായും വെർചൽ സംവിധാനം വഴി നടക്കുന്നത്

നിലവിൽ രണ്ടര ലക്ഷത്തോളം പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്

നിലവിൽ പ്പതിനേഴായിരത്തിലേറെ രോഗികളാണ് മധ്യപ്രദേശിലുള്ളത്

സി എം ആറും ഛത്തീസ്ഗഡ് ആരോഗ്യവകുപ്പും സംയുക്തമായാണ് സീറോ സർവെയലൻസ് നടത്തുന്നത്

മുംബൈയിലും ചെന്നൈയിലും മേഘാവൃതമായ അന്തരീക്ഷത്തിനും ചെറിയ മഴയ്ക്കും സാധ്യത കൊൽക്കത്തയിൽ സാമാന്യം നല്ല മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ അറിയിപ്പിൽ പറയുന്നു

ഇന്ന് മലൂപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാട്ടുണ്ട്

പ്രളയസാധ്യത മുൻനിർത്തി മുൻകരു്തലൂക്ൾ സ്വീകരിക്കാൻ അധികൃതരോടും പൊതുജനങ്ങളോടും ദുരന്ത നിവാരണ അതോറിറ്റി നിർദേശിച്ചു

എസ് ഓപ്പൺ ടെന്നീസിൽ സെറീന വില്യംസ് സെമി ഫൈനലിൽ സ്വെറ്റാന പിറോൺകോവയെ പരാജയപ്പെടുത്തിയാണ് അമേരിക്കൻ താരം സെമി ഫൈനലിൽ എത്തിയത്